ഇന്ന് വൈകിട്ട് തുറക്കും ശക്തമായ സുരക്ഷ ഒരുക്കി പൊലീസ്

കാര്യങ്ങൾ സ്കൂൾതലം മുതൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയിൽ നാല് പുതിയി ജ്ഡ്ജിമാർ ന് ചുമതലയേറ്റു

യുഡിഎഫ് കൊണ്ടുവിന്ന് അവിശ്വാസപ്രമേയം പാസായില്ല

കേരളത്തിന് കീരിട സാധ്യത നഷ്ടമായി

ബ്ലാസ്റ്റേഴ്സ് ബംഗ്ളൂരു എഫ് സി യെ നേരിടും

കായികം കൂട്ടികളുടെ കായികശേഷി വർധിപ്പിക്കാൻ ഗവൺമെന്റ് വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാഠ്യ പദ്ധതിയിൽ സ്കൂൾതലം മുതൽ തന്നെ കായികശേഷി വർധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തും കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടു പറമ്പിൽ നീർമ്മിച്ച സിന്തറ്റിക് ട്രാക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമത്തി

ജസ്റ്റിസുമാരായ ടി വി അനിൽ കുമാർ എൻ അനിൽകുമാർ വി ജി അരുൺ എൻ നഗരേഷ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റീസ് ഋഷികേശ് റോയ് സത്യവാചകം ചൊല്ലികൊടുത്തു

പൊട്ടിക്കാൻ രാത്രി എട്ടുമുതൽ പത്ത് വരെയാണ് പടക്കം പൊട്ടിക്കാൻ കോടതി സമയം അനുവദിച്ചിട്ടുള്ളത് നിർദ്ദേശങ്ങൾ കോടതി പാലിക്കപ്പെടുന്നുണ്ടോയെന്ന് അതാത് സ്ഥലത്തെ സ്റ്റേഷൻഹൌസ് ഓഫീസർമാർ ഉറപ്പാക്കണമെന്നും ഡിജിപി ഉത്തരവിൽ നിർദ്ദേശിച്ചു പടക്ക നിരോധനം ഇൻട്രോ ദീപാവലിയോട് അനുബന്ധിച്ച് പടക്കം പൊട്ടിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവന്ന സുപ്രീംകോടതി നടപടി സ്വാഗതാർഹമാണെന്ന് ഐ എം എ സേഫ് സൌണ്ട് ഇൻഷിയേറ്റീവ് സംസ്ഥാന നോഡൽ ഓഫീസർ ഡോ

ഡി

അവിശ്വാസപ്രമേയം ചർച്ച് ചെയ്യാനിരിക്കെ ഇന്ന് കോൺഗ്രസ്സ് കൌൺസിലർ രാജി വച്ചിരുന്നു ഒലവക്കോട് സൌത്ത് രണ്ടാം വാർഡ് കൌൺസിലർ വി

തുടർച്ചയായ രണ്ടാം കിരീട നേട്ടത്തിലേയ്ക്ക് നീങ്ങുകയാണ് ഹരിയാന ട്രാക്കിലും ഫീൽഡിലും അപ്രതീക്ഷതിത തിരിച്ചടിനേരിട്ട കേരളത്തിന് കിരീട സ്വപ്നം മങ്ങി ദീർഘദൂര ഓട്ടത്തിൽ ഇക്കുറി ഒരു മെഡൽ പോലും കേരളത്തിന് നേടാനായില്ല റാഞ്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി മാധ്യമ പ്രവർത്തകൻ പ്രദീപ് ഗോപാൽ ആകാശവാണിയോട്

അഞ്ചാം സീസണിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്

സമനിലക്കുശേഷം വിജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് ശക്തരായ ബംഗളൂരു കടുത്തൂർവെല്ലു്പിളി ഉയർത്തും

വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും

കെ ടി ജലീൽ മന്ത്രി കെ ടി ജലീൽ രാജി വെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത്ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ആസ്ഥാനത്തേയ്ക്കും സെക്രട്ടറിയേറ്റിലേക്കും മാർച്ച് നടത്തി ന്യൂനപക്ഷ കോർപ്പറേഷൻ ആസ്ഥാനത്തേയ്ക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി

ന്യൂനപക്ഷ കോർപ്പറേഷനിലേക്ക് മന്ത്രിയുടെ ബന്ധുവിനെ നിയമിച്ചു എന്നതാണ് യൂത്ത് ലീഗിന്റെ ആരോപണം സ്മൃതിപഥം വില്ലുവണ്ടി ശതോത്തര ജൂബിലീ് സ്മൃതിപഥം ഇന്ന് കൊല്ലം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും

കാലാവസ്ഥ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു ഭാഗത്തായി നാളെ മുതൽ രൂപംകൊള്ളുമെന്നും എട്ടാം തീയതിയോടെ ന്യുനമർദ്ദം കന്യാകുമാരിക്ക് സമീപത്തുകൂടി വടക്കു പടിഞ്ഞാറേയ്ക്ക് നീങ്ങുമെന്നും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

കടൽ പ്രക്ഷുബ്ധമാകാനിടയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിനു പോകരുതെന്ന് നിർദ്ദേശമുണ്ട്

സ്കൂൾ യൂണിഫോം പദ്ധതി ന്യൂനപക്ഷ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ കൈത്തറി തൊഴിലാളികൾക്ക് കൂലി ഇനത്തിലുള്ള തുക ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ ആവശ്യമായ നടപടിക്ക് നിർദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു